നടപടികളുടെ പുരോഗതിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അൽപസമയത്തിനകം വിലയിരുത്തും

എത്തിക്കാൻ റെയിൽപ്പ് ഹരിത ഇടനാഴി സ്ഥാപിക്കുമെന്ന് ക്ലേന്ദ്രമന്ത്രി പീയുഷ് ഗോയൽ

നിയന്ത്രണം കർശ്ശനമാക്കി പൊതു സ്വകാര്യ ചടങ്ങുകൾക്ക് മാർഗ്ഗരേഖ

ഐ

രാജസ്ഥാൻ റോയൽസിനെ നേരിടും

ന്യൂഡൽഹിയിൽ അല്പം സമയത്തിനകം നടക്കുന്ന അവലോകന യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കും

കോവിഡ് മഷ്ടാമീർിയുടെ രണ്ടാം തരംഗത്തെ ചെറുക്കാൻ ശക്തമായ പ്രതിർഹ്ധ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു

മുഖ്യമന്ത്രി അരവിന്ദ് കെജരിവാൾ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തി

ഒ പുനസ്ഥാപിച്ച കോവിഡ് ആശുപത്രി ന്യൂഡൽഹിയിൽ ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്

യു കിടക്കകളുള്ള ആശുപത്രി ന്യൂഡൽഹി വിമാനത്താവളത്തിലെ ആഭ്യന്തര ടെർമിനിലിന് സമീപമാണ് പ്രവർത്തിക്കുന്നത്

ലോകാരോഗ്യ സംഘടനയുടെ മാർഗ്ഗരേഖകൾക്കനുസരിച്ചാണ് ആശുപത്രി സജ്ജീകരിച്ചിട്ടുള്ളത്

കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺകുമാർ വോയ്സ് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ഓക്സിജൻ സിലിണ്ടറുകളും ടാങ്കറുകളും റെയിൽവെ എത്തിക്കും ഓക്സിജൻ സിലിണ്ടറുകൾ അതിവേഗം എത്തിക്കാൻ ഹരിത ഇടനാഴി സ്ഥാപിച്ചു വരികയാണ്

ആശുപത്രികൾക്ക് ഓക്സിജൻ അതിവേഗം എത്തിക്കാൻ ഉദ്ദേശിച്ചാണ് ് ന്റട്പടിയെന്ന് ശ്രീ

വിവേചനങ്ങൾ ഇല്ലാതെ സംസ്ഥാനങ്ങളുടെ ആവശ്യം നിറവേറ്റാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് ശ്രീ

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കോവിഡ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ ജനങ്ങൾ കർശനമായി പാലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു

കൂടുതൽ ജാഗ്രത പാലിച്ച് സ്ഥിതി നിയന്ത്രണത്തിലാക്കണമെന്നും ഡോ മിശ്ര അഭിപ്രായപ്പെട്ടു

സി എം ആർ അറിയിച്ചു

ജനസംഖ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ രോഗമുക്തി നിരക്ക് ഏറ്റവും ഉയർന്നതാണ്

ബൂത്ത്തല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താൻ പാർട്ടി ഭാരവാഹികളോട് അദ്ദേഹം നിർദ്ദേശിച്ചു

സിദ്ദ്ൾ രാജ്യങ്ങളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ ്നിന്നും കേരള്ളത്തിൽ എത്തുന്നവർ കോവിഡ് ജാഗ്രത പോർട്ടലിൽ നിർബസ്ക്മായും രജിസ്റ്റർ ചെയ്യണം മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് ആർ ടി

സി

കലാലയങ്ങളിലെ ക്സാസ്സുകളും പരീക്ഷകളും ഓൺലൈനായി മാത്രം നടത്തും വിനോദ സഞ്ചാരകേന്ദ്രങ്ങളിൽ സന്ദർശകർക്ക് വിലക്ക് ഏർപ്പെടുത്തി

ഏറ്റവും ഉയർന്ന ഒറ്റദിവസത്തെ രോഗവ്യാപനമാണിത്

ആശുപത്രിവാസം കുറച്ചു ദിവസത്തേക്ക് ഒഴിവാക്കാൻ മാത്രമേ സഹായിക്കൂ എന്നും അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു

ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിംഗ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും

ഇന്നലെ നടന്ന മത്സരങ്ങളിൽ റോയൽ ചലഞ്ചേഴ്സും ഡൽഹി ക്യാപ്പിറ്റൽസും ജേതാക്കളായി

ജീവനും ജീവനോപാധികളും സംരക്ഷിക്കാൻ ്ട്ക്്ദം സംസ്ഥാനങ്ങളുമായി ചേർന്ന് വിപുലമായി പദ്ധതിക്കളിാണ് ് ആവിഷ്ക്കരിച്ചിട്ടുള്ളതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അ്രിയിച്ചു

ഫ്രാൻസിലെ ഉന്നതതല സൈനിക നേതൃത്വവുമായി വ്യോമസേനാ മേധാവി ചർച്ച നടത്തും ഫ്രഞ്ച് വ്യോമ ബഹിരാകാശ സൈനിക മേധാവി ജനറൽ ഫിലിപ്പ് ലവിനെ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ചതിന്റെ തുടർച്ചയായാണ് എയർ ചീഫ് മാർഷൽ ബദൌരിയയുടെ ഫ്രാൻസ് സന്ദർശനം